മഹാരാഷ്ട്രയിൽ ഉദ്ദവ്താക്കറെ ഗവണ്മെന്റിനെ നയിക്കുമെന്ന് എൻ സി

നേതാവ് ശരത് പവാർ സഖ്യകക്ഷികളുടെ സംയുക്ത വാർത്താസമ്മേളനം നാളെ

ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ പിങ്ക് ബോൾ ടെസ്റ്റിൽ മിന്നുന്ന ഫീൽഡിംഗ് പ്രകടനവുമായി ഇന്ത്യ

ഇക്കാര്യത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ ധാരണയുണ്ടായതായി ശ്രീ ശരത്പവാർ അല്പ്സ്മയത്തിനു മുമ്പ് മുംബൈയിൽ വാർത്താലേഖകരോട് പ്രെറഞ്ഞു ഇതു സംബന്ധിച്ചു ചർച്ചകൾ തുടരുകയാണ്

മഹാരാഷ്ട്രയിൽ സഖ്യ ഗവണ്മെന്റ് രൂപീകരിക്കുന്നതിനു മുന്നോടിയായി ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ പാർട്ടി എം

എമാരുമായി മുംബെയിൽ നിലവിലെ രാഷ്ട്രീയ സാഹചരൃം ചർച്ചചെയ്തു കോൺഗ്രസും എൻ സി പിയുമായി ചേർന്ന് ഗവണ്മെന്റ് രൂപീകരണത്തിന് അംഗീകാരം നല്കിയതായി യോഗത്തിൽ എം എൽ

ശിവസേനാ യോഗം അവസാനിച്ചതിനു പിന്നാലെ കോൺഗ്രസും എൻ സി

യും ഗവണ്മെന്റ് രൂപീകരണം സംബന്ധിച്ച് ചെറുപാർട്ടികളുമായി ചർച്ച നടത്തി

ചോദ്യോത്തര വേളയിലാണ് ഇരുസഭകളിലും കേന്ദ്ര ഗവൺമന്റ് ഇക്കാര്യം അറിയിച്ചത്

വിഷയത്തിലും ഡൽഹിയിലെ വിതരണം ചെയ്യുന്ന ജലത്തിന്റെ ഗുണനിലവാരത്തിലും പ്രതിഷേധിച്ച് ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ രാജ്യസഭയിൽ ബഹളം വച്ചു

തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ കോൺഗ്രസ് എം

മാരായ ഗുലാം നബി ആസാദ് ആനന്ദ് ശർമ്മ ആധിർ രഞ്ജൻ ചൌധിര എന്നിവർ ലോക്സഭയിൽ പ്രതിഷേധിച്ചു ഇത് സംബന്ധിച്ച് സുതാര്യത വേണമെന്ന് എം

മാർ ആവശ്യപ്പെട്ടു

ലോക്സഭയിൽ ഒരു ചോദ്യത്തിനുത്തരമായി പരിസ്ഥിതി സഹമന്ത്രി ബാബുൽ സുപ്രിയോ അറിയിച്ചതാണ് ഇക്കാര്യം ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിനായി സംസ്ഥാന ഗവൺമെന്റുകൾ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചുള്ളതാണ് മാർഗ്ഗനിർദ്ദേശം

ലോക്സഭയിൽ എഴുതി നൽകിയ ഒരു ച്ചോദൃത്തിനുത്തരമായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വനീക്കുമാ്ർ ചൌബെ പറഞ്ഞതാണിക്കാര്യം ക്യാൻസർ ഡയബറ്റീസ് ഹൃദയസംബന്ധിയായ അസുഖങ്ങൾ എന്നിവയുടെ നിയന്ത്രണവും തടയലുമെന്ന ദേശീയ പരിപാടിയുടെ ഭാഗമായാണ് നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതെന്ന് മന്ത്രി പറഞ്ഞു

പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി ഈ പദ്ധതിവഴി കർഷകർക്ക് വിതരണം ചെയ്യുന്നതായും മന്ത്രി പറഞ്ഞു ആധാർ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കൾക്ക് സഹായ വിതരണം നടത്തുന്നത്

ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉന്നയർന്നതാണെന്നും മന്ത്രി പറഞ്ഞു

ലോകാരോഗൃ സംഘടന ലോകബാങ്ക് സിഐഐ അസോചം അമൈക്രോസോഫ്റ്റ് ഐഐറ്റി എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ചകളിൽ പങ്കെടുത്തു അനുയോജ്യവും സ്ഥിരതയാർന്നതുമായ അവസരങ്ങളുടെ സൃഷ്ടിയിലൂടെ ദുർബലവിഭാഗങ്ങളുടെ ശാക്തീകരണം എന്ന ആശയം കേന്ദ്രീകരിച്ച് ഗുണപ്രദമായ ചർച്ചകളും നടന്നു

കൂടുതൽ യാത്രക്കാർക്ക് തീരുമാനം പ്രയോജനപ്പെടും

രാത്രി എട്ട് മണിക്ക് പരിപാടിയുടെ പുനപ്രക്ഷേപണവും ഉണ്ടാവും

സംഭവത്തിന്റെ സ്റ്റേഷനിലേക്ക് പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡയറക്ടർ എന്നിവരുമായി വിദ്യാഭ്യാസമന്ത്രി സി

വിശദമായ അന്വേഷണത്തിന് ഡയറക്ടറെ ചുമതലപ്പെടുത്തി

പിങ്ക് പന്ത് ഉപയോഗിച്ച് ഇന്ത്യൂയിൽ നടക്കുന്ന ആദ്യമത്സരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ്ക്ഷ്യ്ഖ് ഹസീനയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബ്ദാനർജിയും സംയുക്തമായാണ് ഉദ്ഘാടനം ചെയ്തത് ബിസിസിഐ അദ്ധ്യക്ഷൻ സൌരവ് ഗാംഗുലിയും ബംഗ്ലാദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ അദ്ധ്യക്ഷൻ നസ്മുൾ ഹസൻ പാപ്പോണും സന്നിഹിതരായിരുന്നു മുൻതാരങ്ങളായ സച്ചിൻ ടെൻഡുൽക്കറും സുനിൽ ഗവാസ്ക്കറും മത്സരം കാണാനെത്തി

കൊട്ടിഘോഷിച്ച് നടപ്പാക്കുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി മൂലം ചൈനയ്ക്കു മാത്രമാകും പ്രയോജനമെന്നും അമേരിക്ക അഭിപ്രായപ്പെട്ടു ഇതിലും മെച്ചപ്പെട്ട മാതൃകയും പാകിസ്ഥാന് വാഗ്ദാനം ചെയ്യുന്നതായി ദക്ഷിണേഷൃ കാരൃങ്ങളുടെ ചുമതലയുള്ള ആക്ടിംഗ് സ്റ്റേറ്റ് സെക്രട്ടറി ആലിസ് വെൽസ് പറഞ്ഞു

ഇരു സൂംസ്ക്കാരങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെയും സൂചിപ്പിക്കുന്നതായിരിക്കും അടുത്ത വർഷം ആരംഭിക്കുന്ന പരിപ്പാട്ടികളെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു